ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് യു

എക്സ് മീഡിയ കേസിൽ പി ചിദ്രംബരത്തെ കോടതി നാലുദി വസത്തെ സി ബി

വി സിന്ധുവും ബി സായ്പ്രണീതും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷി പ്പിന്റെ കാർട്ടറിൽ പ്രവേശിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഇന്ത്യയും ഫ്രാൻസും ഭീകരവാദം നേരിടുന്നതിലും സുരക്ഷയുടെ കാര്യ ത്തിലും സഹകരണം വ്യാപിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറി യിച്ചു ഫ്രാൻസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ഒന്നര മണിക്കൂറോളം ചർച്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാരൃം അറി യിച്ചത് കശ്മീർ പ്രശ്നം ഇന്ത്യയും പാക്കിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയി ലൂടെ പരിഹരിക്കണമെന്നും മൂന്നാംകക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ മക്രോൺ അറിയിച്ചു ഇക്കാര്യം ഉടൻതന്നെ പാക്കിസ്ഥാൻ പ്രധാനമന്ത്രിയു മായി സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ന് യു

ഇയിലേക്ക് പോകും

എക്സ് മീഡിയ കേസിൽ അറസ്റ്റിലായ മുൻ ധനമന്ത്രി പി ചിദംബരത്തെ ഡൽഹി പ്രത്യേക കോടതി നാലുദിവസത്തെ സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു ചിദംബരത്തെ കസ്റ്റഡിയിൽ ചോദ്യംചെയ്യണമെന്ന സി

ഐയുടെ ആവശ്യം ന്യായമാണെന്നും അദ്ദേഹത്തിനെതിരായ ആരോ പണം ഗൌരവമേറിയതാണെന്നും കണ്ടെത്തിയാണ് കസ്റ്റഡിയിൽ വിടുന്ന തെന്ന് കോടതി അറിയിച്ചു

ചിദംബരത്തിന്റെ അന്തസ്സ് മാനിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞു

ബി ഐ കസ്റ്റഡിയിൽ കഴി യുന്ന നാല് ദിവസവും അര മണിക്കൂർ വീതം കുടുംബാംഗങ്ങൾക്കും അഭി ഭാഷകർക്കും അദ്ദേഹത്തെ കാണാൻ അനുവാദം നൽകിയ കോടതി രണ്ടു ദിവസത്തിലൊരിക്കൽ ചിദംബരത്തിന്റെ വൈദ്യ പരിശോധന നടത്തണ മെന്നും നിർദ്ദേശിച്ചു

ഐ ശക്തമായി എതിർത്തിട്ടും സ്വയം വാദിക്കാൻ ചിദംബരത്തിന് സി

ഐ പ്രത്യേക കോടതി ജഡ്ജി അജയ്കുമാർ കുഹാർ അനുവാദം നൽകി

രുട്ടിട്ട്ട്ട്ട്ട്ട അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തും അറസ്റ്റ് തടയണമെന്ന് ആവശൃപ്പെട്ടും ചിദം ബരം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

രുട്ട്ട്ട്ട്ട്ട്ട്ട പ്രളയദുരന്തങ്ങളിലും ഉരുൾപൊട്ടലിലും കൃഷിനാശം സംഭവിച്ച കർഷ കർക്ക് സാമ്പത്തിക സഹായം സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് നട പടി സ്വീകരിച്ചതായി മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു നിലമ്പൂരിൽ കൃഷിനാശം സംഭവിച്ച വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരി ക്കുകയായിരുന്നു മന്ത്രി ഈ പ്രദേശത്തെ കർഷകർ എടുത്ത വായ്പകൾ സംബന്ധിച്ച് ബാങ്ക് അധികൃതരുമായി സംസാരിച്ച് ആശ്വാസ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു രദ്ദമ്പ്പെട്ടറ മലപ്പുറം ജില്ലയിലെ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വിള്ളൽ കണ്ട ഭാഗങ്ങൾ ജിയോളജി സോയിൽ കൺസർവേഷൻ വിഭാഗം പരിശോധിച്ചു വനത്തോ ട് ചേർന്ന സ്ഥലത്താണ് ഭൂമിയിൽ വിള്ളൽ കാണപ്പെട്ടത് രദ്ദേഷ്ടങ ഇടുക്കി ജില്ലയിൽ മഴക്കെടുതിയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായ പ്രദേശങ്ങളിൽ ജിയോളജിക്കൽ വിഭാഗം പരിശോധന ആരംഭിച്ചു രണ്ടു പേരടങ്ങുന്ന അഞ്ച് സംഘങ്ങളാണ് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പ രിശോധന നടത്തുന്നത് മണ്ണിന്റെ ഘടന ഭൂപ്രകൃതിയുടെ ചെരിവ് മേഖല യിലെ ജലസാന്നിദ്ധ്യം പാറകളുടെ പ്രത്യേകതകൾ തുടങ്ങിയവയാണ് സം ഘം പരിശോധിക്കുന്നത് രദ്ദേഷ്ടങ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അണക്കെട്ട് ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും തുറക്കും

കരമാൻതോട് പനമരം പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പി ക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കെ

വടക്കാഞ്ചേരി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ അറിയിച്ചു പുഴയിൽ മത്സ്യ ബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി രദേഷ്ടെടു നൂറ്റാണ്ടിലെ വലിയ പ്രളയം തകർത്ത കേരളത്തിലെ കാർഷിക മേഖല യ്ക്ക് താങ്ങും തണലുമായി നിന്ന ക്ഷീരകർഷകർ വലിയൊരു തകർച്ചയെ നേരിടുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം

കർഷകരുടെ ചെലവിന് അനുസൃതമായി പാൽ വില വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇതിന്റെ ഭാഗമായി ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപി ച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തെക്കുപടിഞ്ഞാറൻ അറബി ക്കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മത്സ്യബ ന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട് രദേഷ്ടെടു കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ ആദായനി കുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നുകയറ്റം നടത്തുന്നത് പരിശോധിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ ഉറപ്പുനൽകിയതായി മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞദിവസം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി യുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്ന് മന്ത്രി തിരുവനന്തപു രത്ത് പറഞ്ഞു

ബാലഗോകുലങ്ങളുടെയും വിവിധ ക്ഷേത്ര ദേവസ്വങ്ങളുടെയും ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കും ശ്രീകൃഷ്ണ ലീലകൾ അനുസ്മരിപ്പിക്കുന്ന വർണ്ണാഭമായ ശോഭായാത്രകളും മറ്റ് സാംസ്കാരിക പരിപാടികളും നടക്കും രദ്ദേഷ്ടങ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് ന ഗരത്തിൽ നടക്കുന്ന മഹാശോഭായാത്ര ശ്രീകണ്ഠേശ്വര ക്ഷേത്രപരിസരത്ത് നിന്ന് ആരംഭിക്കും

എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെ ടുത്തി

മായങ്ക് അഗർവാൾ ചേതേശ്വർ പൂജാര ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവരാണ് രണ്ടക്കം തികയ്ക്കാതെ പുറത്തായത്

വി സിന്ധുവും ബി സായ് പ്രണീതും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ കാർട്ടറിൽ പ്രവേശിച്ചു ലോക അഞ്ചാംന മ്പർ താരം കൌശ്രീകാന്തും സൈന നേവാളും മലയാളി താരം എച്ച് എസ് പ്രണോയിയും പ്രീ കാർട്ടറിൽ പുറത്തായി

പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന അധ്യാപക സംഘടനാ നേതാ ക്കളുടെ യോഗത്തിലാണ് തീരുമാനം

മുഖ്യമന്ത്രി പിണറായി വിജ യന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി കമലവർദ്ധ ട നറാവു കർണാടക മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും നേരിൽ കണ്ട് പ്രശ്നം അവതരിപ്പിച്ചതിനെ തുടർന്ന് വനഭൂമി ഏറ്റെടുത്ത് മറ്റൊരു വഴി ഒരു ക്കുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു ഇക്കഴിഞ്ഞ കനത്ത മഴയിലാണ് കേരള അതിർത്തിയിൽ നിന്ന് പത്തുകിലോമീറ്റർ മാറി കർണാടകയിലെ പെരുംപാ ടിയിൽ മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് തീരസംരക്ഷണത്തിന് ആരംഭിക്കുന്ന ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതിയുടെ ആദ്യഘട്ടം പൂന്തുറയിൽ നടപ്പാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു

ഇതിന് തുക കിഫ്ബിയിൽ നിന്ന് കണ്ടെത്തും

ഇപ്പോഴത്തെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുവെച്ച് നൽകുന്നത് വകുപ്പിന്റെ പരിഗണ്നയിലുണ്ടെന്ന് മന്ത്രി തിരുവന ന്തപുരത്ത് പറഞ്ഞു

അട്ട്ട്ട്ട്ട്ട്ട്ട ജലക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കനാൽ വഴി ജലവിതരണം കാര്യക്ഷമമാക്കാൻ ഫാർമേഴ്സ് ക്ലബുകൾക്ക് ചുമതല നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ജലശക്തി അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് ചിറ്റൂരിൽ സംഘടിപ്പിച്ച കിസാൻ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദർവ്വെട്ടറ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന കൺവീനറും ബി ഡി

എസ് അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ അറസ്റ്റ് ദുരുപദിഷ്ട വും രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് സംശയിക്കുന്നതായി ബി

പി സം സ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പറഞ്ഞു

വിവിധ ശുചിത്വ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് നൽകുകയാണ് സർവേയുടെ ലക്ഷ്യം

കെ മുനീർ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

വടകര സ്പദേശി നാരായണ നാണ് പാലക്കുന്നിൽ പൊലീസ് പിടിയിലായത്